സാമ്പത്തിക വിദഗ്ധരും സംരംഭകരുമായി പ്രധാനമന്ത്രി ആശയവിനിമയം നടത്തി അഞ്ച് ട്രില്ല്യൺ ഡോളർ സമ്പദ്വൃവസ്ഥയെന്ന ലക്ഷ്യം കൈവരിക്കാൻ എല്ലാവരും ഒത്തൊരുമിച്ച് പ്രവർത്തിക്കണമെന്നും നരേന്ദ്രമോദി

കരസേനാ മേധാവി ജനറൽ മനോജ് മുകുന്ദ് നരവണെ സിയാച്ചിൻ സന്ദർശിച്ചു

വടക്കേ ഇന്ത്യയിലെ വിവിധ മേഖലകളിൽ അതിശൈതൃം തുടരുന്നു

കാലലംപൂരിൽ നടക്കുന്ന മലേഷ്യ മാസ്റ്റേഴ്സ് ബാഡ്മിന്റൺ ടൂർണമെന്റിൽ പി

സിന്ധുവും സൈനാ നെഹ്വാളും ക്വാർട്ടർ ഫൈനലിൽ

കൂടുതൽ വിവരങ്ങളുമായി കരോൾ അബ്ഹാം വോയ്സ് അഞ്ച് ട്രില്ല്യൺ ഡോളർ സമ്പദ്ച്ചുവസ്ഥ എന്ന ലക്ഷ്യം പെട്ടെന്നുള്ള സംഭവവികാസമല്ലെന്നും ഇത് രാജ്യത്തിന്റെ വളർച്ചയ്ക്ക് സംഭവവികാസമല്ലെന്നും പ്രിയാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു ന്യൂഡൽഹിയിൽ നടന്ന നിതിട് ആയോഗ് യോഗത്തിൽ സാമ്പത്തിക വികസനം സംബന്ധിച്ച് സാമ്പത്തിക വിദ്ഗ്ധരും സംരംഭരുമായി ആശയവിനിമയം നടത്ത്ുകയായിരുന്നു അദ്ദേഹം സാധ്യതകളുള്ള രാജ്യമാണ് ഇന്ത്യയെന്നും ഒരു രാജ്യമെന്ന ചിന്തയിൽ എല്ലാവരും ഒന്നിച്ച് പ്രവർത്തിക്കണമെന്നും പ്രധാനമന്ത്രി ഓർമ്മിപ്പിച്ചു

കൃഷി ആരോഗ്യപരിപാലനം എന്നിവയ്ക്കു പുറമെ വ്യവസായം നിക്ഷേപം നിർമ്മാണം വിനോദസഞ്ചാരം എന്നീ സ്ഥകാര്യ മേഖലയിൽ നിന്നുള്ളവരും യോഗത്തിൽ പങ്കെടുത്തു കേന്ദ്രമന്ത്രിമാരായ അമിത് ഷാ നിതിൻ ഗഡ്കരി നരേന്ദ്രസിംഗ് തോമർ പീയുഷ് ഗോയൽ നിതി ആയോഗ് ഉപാധ്യക്ഷൻ രാജീവ് കുമാർ സി ഇ ഒ

ന്യൂസ് ഡെസ്ക് ആകാശവാണി

പ്രതികൂല സാഹചര്യ മേഖലകളിൽ സായുധ സേനയുടെ പ്രാധാന്യം അദ്ദേഹം ഊന്നിപ്പറഞ്ഞു തണുത്തുറഞ്ഞ സാഹചര്യങ്ങളിൽ സൈനികർ അവശ്യ് വസ്തുക്കൾ പോലും ഉപേക്ഷിക്കുന്നത് അദ്ദേഹം നേരിട്ട് കറിഞ്ഞു വീരചരമം പ്രാപിച്ച സൈനികർക്ക് കരസേനാ മേധാവി പുഷ്പചക്രം അർപ്പിക്കുകയും സിയാച്ചിനിലെ യുദ്ധസ്മാരകത്തിൽ ശ്രദ്ധാഞ്ജലി അർപ്പിക്കുകയും ചെയ്തു

ഹൈദരാബാദിലെ ഇന്ത്യൻ സ്കൂൾ ഓഫ് ബിസിനസിൽ നടന്ന രണ്ടു ദിവസത്തെ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം

നഗരത്തിലെ വസീറാബാദ് മേഖലയിൽ നടന്ന പോരാട്ടത്തിലാണ് ഇവർ പിടിയിലായതെന്ന് ഡെപ്യൂട്ടി കമ്മീഷണർ പി

ഉത്തർപ്രദേശിലും രാജ്യ തലസ്ഥാനത്തും ആക്രമണം നടത്താൻ ഇവർ പദ്ധതിയിട്ടിരുന്നതായും അദ്ദേഹം പറഞ്ഞു വിദേശത്തു നിന്നും ഇവർ നിർദ്ദേശങ്ങൾ സ്വീകരിച്ചുവരികയായിരുന്നുവെന്നും ഇവരുടെ പക്കൽ നിന്നും ആയുധങ്ങൾ കണ്ടെടുത്തായും ശ്രീ കുഷ്വാഹാ അറിയിച്ചു

പാറ്റ്നയിൽ അറസ്റ്റിലായ ലക്ഡാവാലയെ മുംബൈയിലെത്തിച്ച് കോടതിയിൽ ഹാജരാക്കിയതായി മുംബൈ പോലീസ് കമ്മീഷണർ സഞ്ജയ് ബാർവെ അറിയിച്ചു

പൌരത്വ ഭേദ്ഗിതി നിയമ പ്രകാരം പുതിയ ആളുകൾക്ക് പൌരത്വം ലഭിക്കില്ലെന്നും ശ്രീ

കോൺഗ്രസിന്റെ ഭരണകാലത്ത് സംസ്ഥാനത്ത് സ്ഥിരതാമ്സമാക്കിയവർക്കാണ് പൌരത്വം ലഭിക്കാൻ സാധ്യതയുള്ളത് പൌരത ഭേദഗതി നിയമത്തെ സംബന്ധിച്ച് പ്രതിഷേധക്കാരോട് സംസാരിക്കാൻ തയ്യാറാണെന്നും എന്നാൽ പ്രതിഷേധം രാഷ്ട്രീയമായി മാറിയെന്നും അദ്ദേഹം പറഞ്ഞു പ്രതിഷേധ സംഘടനകൾ ബി ജെ

യെ ആണ് ലക്ഷ്യമിടുന്നതെന്നും ഹിമന്ത ബിശ്വ ശർമ്മ ആരോപിച്ചു

ചക്മ ഹജോംഗ് വിഭാഗത്തിൽപ്പെട്ടവർക്ക് പുതിയ നിയമത്തോടെ പൌരത്വം നൽകില്ലെന്നും അദ്ദേഹം ഉറപ്പുനൽകി

സംസ്ഥാനത്ത് ഇന്നർലൈൻ പെർമിറ്റ് സംവിധാനം ശക്തിപ്പെടുത്തേണ്ടതുണ്ടെന്നും ശ്രീ

ഇതിനായി സർവകക്ഷി യോഗം ഉടൻ തന്നെ വിളിച്ചുകൂട്ടുമെന്നും ശ്രീ

അഗർത്തലയിലെ ഡെബർമാൻ മൈതാനത്ത് ് നടന്ന പൊലീസ് വീക്ക് പരേഡിനിടെയാണ് അദ്ദേഹം അക്കാര്യം അറിയിച്ചത് പോലീസും പൊതുജനങ്ങളും തമ്മിലുള്ള അകൽച്ച പരിഹരിക്കുകയും ഗ്രാമീണ മേഖലയിൽ ക്രമസമാധാനം ഉറപ്പാക്കുകയുമാണ് ലക്ഷ്യമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു തുടർന്ന് ത്രിപുര പോലീസിന്റെ മാർച്ച് പാസിംഗിന് മുഖ്യമന്ത്രി അഭിവാദ്യം സ്വീകരിച്ചു

കൂടുതൽ വിവരങ്ങളുമായി കരോൾ അബ്രഹാം

ജമ്മുകശ്മീരിലെ സ്ഥിതിഗതികൾ വിലയിരുത്തുകയും പ്രാഥമിക റിപ്പോർട്ടുകൾ ശേഖരിക്കുകയാണ് സംഘത്തിന്റെ ലക്ഷ്യമെന്ന് വിദേശകാര്യ വക്താവ് രവീഷ് കുമാർ ന്യൂഡൽഹിയിൽ പറഞ്ഞു അമേരിക്ക ദക്ഷിണ കൊറിയ വിയറ്റ്നാം ബംഗ്ലാദേശ് മാലദ്ധീപ് മൊറോക്കൊ ഫിജി നോർവെ ഫിലിപ്പൈൻസ് അർജന്റീന പെറു നൈജർ നൈജീരിയ ടോഗൊ ഗയാന് തുടങ്ങിയ രാജ്യങ്ങളിലെ നയതന്ത്ര പ്രതിനിധികളാണ് സംഘത്തിൽ ഉൾപ്പെട്ടിട്ടുള്ളത് ലഫ്റ്റനന്റ് ഗവർണർ ജി

മുർമ്മുവുമായും രാഷ്ട്രീയ പ്രതിനിധികളുമായും പൌരപ്രമുഖരുമായും സംഘം കൂടിക്കാഴ്ച നടത്തി

കേന്ദ്ര ഗവൺമെന്റിന്റെ ഇരട്ടത്താപ്പ് നയമാണ് ഇത് വ്യക്തമാക്കുന്നതെന്ന് കോൺഗ്രസ് നേതാവ് ജയറാം രമേശ് ന്യൂഡൽഹിയിൽ മാധ്യമങ്ങളോടായി പറഞ്ഞു എല്ലാ രാഷ്ട്രീയ പാർട്ടി നേതാക്കൾക്കും തട്ടസ്സ്മില്ലാതെ ജമ്മു കാശ്മീർ സന്ദർശിക്കുന്നതിനുള്ള അനുമതി അദ്ദേഹം ആവശ്യപ്പെട്ടു

ഫറൂഖ് ഖാൻഒ കെ

ശർമ്മ രാജീവ് റായ് ഭട്നഗർ എന്നീ മൂന്ന് ഉപദേശകരാണ് ലെഫ്റ്റനന്റ് ഗവർണർക്കുള്ളത്

എസ് ഇറാൻ സംഘർഷത്തെ തുടർന്നുള്ള സംഭവ വികാസങ്ങൾ സശ്രഭ്ധം വീക്ഷിച്ചുവരുന്നതായി ഇന്ത്യ ഗൾഫ് മേഖലയിലെ പ്രതിസന്ധികൾ എത്രയുംവേഗം അവസാനിക്കണമെന്നാണ് രാജ്യം ആഗ്രഹിക്കുന്നതെന്നും വിഷയത്തെ സംബന്ധിച്ച് വിവിധ രാജ്യങ്ങളുമായി ചർച്ച നടത്തി വരികയാണെന്നും വിദേശകാര്യ മന്ത്രാലയ വക്താവ് രവീഷ്കുമാർ ന്യൂഡൽഹിയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു ഇത് സംബന്ധിച്ച് ഇറാൻ യു എ

ജോർദാൻ ഒമാൻ വിദേശകാര്യ മന്ത്രിമാരുമായി ഇന്ത്യൻ പ്രവിദേശകാര്യ മന്ത്രി എസ് ജയശങ്കർ ചർച്ച നടത്തിയെന്നും അദ്ദേഹം അറിയിച്ചു

ഈ മേഖലയിൽ ധാരാളം നേപ്പാളി കുടിയേറ്റ തൊഴിലാളികൾ അധിവസിക്കുന്നതിനാൽ ഇവരുടെ സുരക്ഷയും സംരക്ഷണവും നേപ്പാൾ ഗവൺമെന്റ് പ്രാധാന്യത്തോടെ കാണുന്നതായും പ്രസ്താവനയിൽ പറയുന്നു മേഖലയിലെ സമാധാനത്തിനും സ്ഥിരതയ്ക്കും വെല്ലുവിളിയാകുന്ന പ്രവർത്തനങ്ങൾക്ക് നിയന്ത്രണമേർപ്പെടുത്താൻ ഗവൺമെന്റ് എല്ലായ്പ്പോഴും ആവശ്യപ്പെട്ടിട്ടുന്നെും വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു

പ്രധാനമന്ത്രി ബോറിസ് ജോൺസണിന്റെ ബ്രക്സിറ്റ് കരാറിന് അംഗീകാരം നൽകുന്ന പ്രതിനിധിസഭ ഇത് സംബന്ധിച്ച് വാദങ്ങളും ഇന്ന് കേൾക്കും

സംസ്ഥാനത്തെ വിവിധ മേഖലകളിൽ വൈദ്യുത ജലവിതരണം തടസ്സപ്പെട്ടു ഹിമാചൽ പ്രദേശിലും ശൈത്യം തുടരുകയാണ് ഷിംല മണാലി ഡൽഹൌസി തുടങ്ങിയ സ്ഥലങ്ങളിൽ താപനില പൂജ്യത്തിനും താഴെയായി

പ്രീക്വാർട്ടറിൽ നിലവിലെ ലോകചാമ്പ്യനും ആറാം സീഡുമായ സിന്ധു ജപ്പാന്റെ അയാ ഹോരിയെയാണ് തോൽപ്പിച്ചത്

ഗെയിംസിന്റെ ഉദ്ഘാടന ചടങ്ങ് നാളെ വൈകിട്ട് ഗുവാഹത്തിയിലെ സരുസജായി മൈതാനത്തിൽ നടക്കും ഗെയിംസിനുള്ള എല്ലാ ക്രമീകരണങ്ങളും പൂർത്തിയായതായി സി

അവിനാശ് ജോഷി പറഞ്ഞു